ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു

തെരഞ്ഞെടുപ്പിലേക്കുള്ള പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും

ഇന്ത്യ ഒന്നാം സ്ഥാനത്ത്

റിപ്പോ നിരക്കിൽ മാറ്റമില്ല

വൈകുന്നേരം ആറ് വരെ വോട്ടെടുപ്പ് തുടരും

മാരെയും മൂന്ന് ജെ

വിമത എം

എ

ജെ

ന്യൂസ്ഡെസ്ക് ആകാശവാണി

പ്രമുഖ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട മുൻനിര നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു ഇന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുതിർന്ന നേതാക്കൾ എത്തും

അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുളള ഹിന്ദു സിഖ് ബുദ്ധമതക്കാർ ജൈനമതക്കാർ ക്രിസ്ത്യാനികൾ പാർസികൾ എന്നീ വിഭാഗങ്ങളിൽപ്പെടുന്ന അനധികൃത കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൌരത്വം നൽകുന്നത് ലക്ഷ്യമിടുന്നതാണ് ബിൽ

നടപ്പു ശീതകാല സമ്മേളനത്തിൽ ബിൽ പരിഗണിക്കാനാണ് സാധ്യത

ലോക്സഭ നേരത്തെ പാസ്സാക്കിയ ബില്ലിന് രാജ്യസഭ അനുമതി നൽകുകയായിരുന്നു

വിൽപ്പനാ കരാറുകൾ പവർ ഓഷ്ട്ര അ്റ്റോർണി വിൽപ്പത്രങ്ങൾ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ പ്രജ്നങ്ങൾക്ക് ഉടമസ്ഥാവകാശം ഉന്നയിക്കാവുന്നതാണ്

നടിശാരദയാണ് വിശിഷ്ടാതിഥി തുടർന്ന് ഉദ്ഘാടന ചിത്രമായ പാസ്സ്ഡ് ബൈ സെൻസർ പ്രദർശിപ്പിക്കും

ചീഫ് ജസ്റ്റിസ് എസ്

എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ശബരിമല ക്ഷേത്ര ദർശനം നടത്താം എന്ന സുപ്രീംകോടതി വിധി നിലനിൽക്കെ ബിന്ദു അമ്മിണിയെ തടഞ്ഞുവെന്നതാണ് ഹർജിക്ക് ആധാരമായ വസ്തുത പൊലീസ് കമ്മീഷണറുടെ ഓഫീസിനു പുറത്തു തന്നെ ആക്രമിച്ചുവെന്നും ഹർജിയിൽ പറയുന്നു രെഹാന ഫാത്തിമയും ഇതേ ആവശ്യം ഉന്നയിച്ച് ഇന്നലെ സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു

പാകിസ്ഥാന്റെ നടപടി പ്രകോപനപരമാണെന്നും സംഘർഷത്തിനിടയാക്കുമെന്നും ഇന്ത്യ പ്രതികരിച്ചു ലോക്സഭയിൽ രേഖാമൂലം നൽകിയ ചോദ്യത്തിനുള്ള മറുപടിയിൽ വിദേശകാര്യസഹമന്ത്രി വി

വെറ്റിനറി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊല്ലിപ്പടുത്തിയ കേസിൽകൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് പ്രിതികളെ കോടതി ഏഴ് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരുന്നു കേസിൽ നിയമ നടപടികൾ വേഗത്തിലാക്കുന്നതിനായി അതിവേഗ കോടതിയെയും സംസ്ഥാന ഹൈക്കോടതി നിയമിച്ചു അതിനിടെപൊതു സ്ഥലങ്ങളിൽ റാലികളോ പ്രതിഷേധ പ്രകടനങ്ങളോ ഇന്നു മുതൽ നടത്താൻ പാടില്ലെന്ന് പൊലീസ് നിർദ്ദേശം നൽകി

സ്ട്രെട്ടവത്തെ തുടർന്ന് കാണാതായ ഇന്ത്യാക്കാരുടെയും ആശുപത്രിയിൽ ചികിൽസയിലുള്ളവരുടെയും അപകടനില തരണം ചെയ്തവരുടെയും വിശദാംശങ്ങൾ സ്ഥാനപതി കാര്യാലയം പുറത്തുവിട്ടു ചികിൽസയിൽ കഴിയുന്ന ഏഴിൽ നാല് പേരുടെ നില ഗുരുതരമാണെന്നാണ് സൂചന

അപകടത്തിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം എല്ലാ സഹായവും നൽകി വരുന്നതായി പ്രധാനമന്ത്രി ടിറ്ററിൽ പറഞ്ഞു

രേവയിൽ ഇന്നു രാവിലെയായിരുന്നു അപകടം

രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിച്ചുകൊു തന്നെ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുളള നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയെന്ന നിലപാടാണുളളതെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് വ്യക്തമാക്കി ചൈനയെ മാത്രം ആശ്രയിക്കുന്ന നയത്തിൽ നിന്നും മാറ്റം വരുത്തുന്ന നിലപാടാണ് ശ്രീലങ്ക സ്വീകരിച്ചിരിക്കുന്നത്

ഇദ്സ്ട് അഞ്ജു സാബു നിസ്സി ലൈസി തമ്പി അൻസുമോൾ ബെന്നിശ്രീൽൾ ഷാജി പി

അനശ്വര എന്നിവർ മൽസരത്തിനിറങ്ങും

ആലപ്പുഴ ഇ

എസ് സ്റ്റേഡിയത്തിലാണ് മേള നടക്കുന്നത് കയർ രംഗത്തെ പുത്തൻ ഉൽപ്പന്നങ്ങളും ഉപയോഗ സാധൃതകളും എന്ന വിഷയത്തിൽ രാവിലെ നടന്ന ചർച്ചാ സമ്മേളനം മന്ത്രി റ്റി

കയറിന്റെ ആഭ്യന്തര വിപണി ശക്തിപ്പെടുത്താൻ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള മന്ത്രിമാരുമായി ചർച്ച നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു കയർ വലപ്പായ നിർമ്മാണത്തിലൂടെ മാത്രം വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നും ശ്രീ ഐസക് അഭിപ്രായപ്പെട്ടു